ഇന്ത്യ പിന്നോട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഹൈദരാബാദ് കൊൽക്കത്തനൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപരിയായി ലോകത്തിന്റെ ക്ഷേമത്തിനാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

കോവിഡ് സാഹചര്യത്തെ നേരിടുന്നതിന് യു

ഇനിയും എത്ര നാൾ യു എന്നിന്റെ നയരൂപീകരണ കൌൺസിലിൽ നിന്ന് ഇന്ത്യയെ അകറ്റിനിർത്താൻ സാധിക്കുമെന്ന് ശ്രീ

വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഭാരതം ശാന്തിയും സമാധാനത്തിനുമായിയാണ് നിലകൊള്ളുന്നത്

ആത്മനിർഭർ ഭാരത് എന്ന ആശയം ആഗോള സമ്പദ് ഘടനയ്ക്ക് ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

എന്നിന്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാവാൻ സാധിച്ചതിൽ ഇന്ത്യക്ക് അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ യും തമ്മിൽ നടന്ന ആദ്യ വെർച്ചൽ ഉഭയിക്ക്ഷി ചർച്ചയിലായിരുന്നു തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ ഹോൾഡ് വോയിസ് ശ്രീലങ്കയ്ക്ക് നൽകിയ ഈ ധനസഹായം ഇരുരാജ്യങ്ങളിലേയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അമിത് നരംഗ് പറഞ്ഞു ഇന്ത്യ ശ്രീലങ്ക ബുദ്ധമത തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇരുനേതാക്കളും ഉച്ചകോടിയിൽ അറിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി വിശുദ്ധ നഗരമായ ഖുശിനഗറിലേക്കുള്ള ആദ്യ വിമാനത്തിലെത്തുന്ന തീർത്ഥാടകരുടെ സംഘത്തിന് സന്ദർശനം സുഗമമാക്കുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകി ബുദ്ധമത തീർത്ഥാടനത്തിൽ ഖുഷിനഗറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം അടുത്തിടെയാണ് ഈ വിമാനത്താവളത്തെ നാമകരണം ചെയ്തത് ആയുർവേദം യോഗ എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രാചീന സാംസ് കാരിക ബന്ധം കൂടുതൽ ആഴം ഉള്ളതാണെന്നും അവ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് ഉണ്ടെന്നും ഇരുനേതാക്കളും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിച്ച ജാഫ്ന സാംസ്കാരിക കേന്ദ്രത്തെ കുറിച്ച് ശ്രീ മഹീന്ദ രാജപക്സെ ഉച്ചുകോടിയിൽ പരാമർശിച്ചു

വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം എന്നതാണ് പരിപാടിയുടെ പ്രമേയം

ദൂരദർശനും പരിപാടി സംപ്രേക്ഷണം ചെയ്യും തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ പരിഭാഷയും ഉണ്ടാകും

നിലവിൽ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്

എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്ക്കാരം ചെന്നൈയ്ക്കടുത്തുള്ള തിരുവള്ളൂർ ജില്ലയിലെ താമരൈപാക്കത്തുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൌസിൽ നടന്നു തമിഴ്നാട് സർക്കാരിന്റെ് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സ്സ്കാരം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പ്രിയ ഗായ്ക്കന്റ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു

അബുദാബിയിലെ ഷേഖ് സയെദ് സ്റ്റേഡിയത്തിലാണ് മത്സരം

ന്യൂ പോർട്ട് വെർജീനിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡിനുശേഷമുള്ള കാലത്തെ ചൈനയുമായുള്ള ബന്ധം മുൻപത്തെ പോലെയാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി

ആഭ്യന്തര സുരക്ഷാവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത്

ആറിന്റെ സ്ഥാപക ദിനമായ ഇന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു രാജ്യത്തെ ഗവേഷണ രംഗത്ത് സി

ആർ വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

നവജാത ശിശുക്കളുടെയും അമ്മമാരുടേയും മരണ നിരക്ക് കുറയ്ക്കാനും ചികിത്സാ സൌകര്യങ്ങൾ വികസിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് യു

സംസ്ഥാനത്തിന്റെ ഗ്രാമ നഗര പ്രദേശങ്ങളിൽ കുടുംബാസൂത്രണ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു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

ശൈശവ വിവാഹത്തിനെതിരായ പോരാട്ടത്തിനും വിധവകളുടെ പുനർവിവാഹത്തിനും മുൻകൈയെടുത്ത ഈശ്വർ ചന്ദ്ര വിദ്യാസ്ഥാൾ ബഹുമുഖ പ്രതിഭയായിരുന്നുവെന്നും ശ്രീ നായിഡു ട്വിറ്ററിൽ കുറിച്ചു